വൈറസ് ബാധ സ്ഥിരീകരിച്ച് വീടുകളിൽ നിരീക്ഷണത്തിലുള്ളവർക്കായി സർക്കാർ മാർഗ്ഗ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി

ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പയിലെ ആദ്യ മത്സരം മഴമൂലം ഉപേക്ഷിച്ചു

കേന്ദ്രസർക്കാർ സാഹചര്യത്തെ വളരെ ജാഗ്രതയോടെയാണ് കാണുന്നത് കേന്ദ്രമന്ത്രിമാർ വരുംദിവസങ്ങളിൽ വിദേശ യാത്രകൾ ഒഴിവാക്കും ജനങ്ങളും അത്യാവശ്യമല്ലാത്ത വിദേശയാത്രകൾ ഒഴിവാക്കണമെന്ന് ശ്രീ

രോഗബാധയുടെ വ്യാപനം തടയുന്നതിന് വലിയ ഒത്തുചേരലുകൾ ഒഴിവാക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കൊറോണയെ പ്രതിരോധിക്കാൻ ഏപ്രിധ മുൻകരുതൽ നടപടികൾ മന്ത്രാലയങ്ങളും സംസ്ഥാനങ്ങളും സ്ഥീകരിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായാണ് ചില രാജ്യങ്ങളുടെ വിൻ ്റ്ദാ്ക്കൽ നടപടികളിലേയ്ക്ക് കടന്നതെന്നും അദ്ദേഹം ട്വിറ്ററിൽക്കുറിച്ചു

രാജ്യം വൈറസ് ബാധയെ തടയുന്നതിനുള്ള മുൻകരുതലുകൾ കൈക്കൊണ്ടിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി ലാവ് അഗർവാൾ പറഞ്ഞു പ്രവാസി ഇന്ത്യാക്കാരുടെ ജീവനും സുരക്ഷയുമാണ് സർക്കാറിന്റെ മുൻഗണനയെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടുതൽ വിവരങ്ങളുമായി ദീപു

ഇറ്റലിയിൽ നിന്ന് ഇന്നലെയെത്തിയ ദ പേരെ മനേസറിൽ പ്രത്യേക സജ്ജീകരണത്തിൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ചേർന്ന മന്ത്രിമാരുടെ യോഗത്തിൽ വിവിധ മുൻകരുതൽ നടപടികൾ സ്ഥീകരിച്ചു

ഇറ്റലിയിൽ നിന്നും കൊറിയയിൽ നിന്നും വരുന്ന യാത്രക്കാർക്ക് അതത് രാജ്യങ്ങളിലുള്ള അംഗീകൃത ലാബറട്ടറികളിൽ നിന്ന് രോഗബാധയില്ലെന്ന് തെളിയിക്കുന്ന സാക്ഷ്യപ്പുതം ആവശ്യമാണ് ഉയർന്ന് താപനിലയിൽ വൈറസിന്റെ അത്രിജീവനത്തെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ ധാരണ തെറ്റാണ്ണെന്നും ഇതിനെ സാധൂകരിക്കുന്ന ഒരു പഠനവും ഇതുവരെ നടന്നിട്ടില്ലെന്നും അഗർവാൾ വൃക്തമാക്കി

നിലവിൽ തങ്ങുന്നിടത്ത് താമസിക്കാനും അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കാനും മന്ത്രാലയം നിർദ്ദേശം നൽകി സാഹചരൃം നിയന്ത്രണ വിധേയമാണെന്നും ആശങ്കപ്പെടേതില്ലെന്നും അഡീഷണൽ സെക്രട്ടറി ദാമു രവി ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

എൽ പോലുള്ള കായിക മത്സരങ്ങൾ ഈ സമയത്ത് നടത്തുന്നത് അനിയോജൃമല്ലെന്നും ഇതു സംബന്ധിച്ച തീരുമാനം സംഘാടകരിൽ നിക്ഷിപ്തമാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം വൈറസ് ബാധയെ പ്രതിരോധിക്കുന്നതിന് നാല് രാജ്യങ്ങൾ ഇന്ത്യയോട് സഹായമഭ്യർത്ഥിച്ചിട്ടുന്നെ് വിദേശകാരൃ മന്ത്രാലയ വക്താവ് രവീഷ്കുമാർ പറഞ്ഞു ഭൂട്ടാൻ ഇറാൻ മാലദ്വീപ് ചൈന എന്നിവിടങ്ങളിൽ നിന്നാണ് സഹായമഭ്യർത്ഥിച്ചത്

ഡൽഹി ലഫ് ഗവർണർ അനിൽ ബൈജാലുമായുളള കൂടിക്കാഴ്ചയ്ക്കു ശേഷം മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ് ഇക്കാര്യം അറിയിച്ചത് നിലവിൽ പരീക്ഷകൾ നടക്കാത്ത എല്ലാ സ്കൂളുകളും കോളേജുകളും ഈ മാസം അവസാനം വരെ അടച്ചിടുമെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ സ്വകാരൃ ഓഫീസുകൾ കച്ചവട സ്ഥാപനങ്ങൾ എന്നിവ ഉൾപ്പെടെ വൈറസ് മുക്തമാക്കാനുളള നടപടി സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയതായി അദ്ദേഹം പറഞ്ഞു

രാഷ്ട്രപതി ഭവൻ മ്യൂസിയവും ഇനിയൊരു അറിയിപ്പ് ഉാകുന്നതുവരെ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകില്ല

ഇന്ത്യിൽ നിന്നുളള വിദഗ്ധ സംഘം നാളെ മാലദ്വീപിൽ എത്തിച്ചേർുമെന്ന് മാലി ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അറിയിച്ചു പ്ലിവിധ ്മേഖലയിലെ ഡോക്ടർമാരും ലാബ് ടെക്നീഷ്യൻമാരും സ്ട്ഘത്തിൽ ഉൾപ്പെടുന്നു

വീസാ കാലാവധി ജോലിക്ക് തിരികെ ചേരാനുള്ള കാല്ലാപ്പ്ധി തുടങ്ങിയവ നീട്ടിക്കിട്ടുന്നതിന് ആവശ്യമായ നടപടികൾക്ക് നയതന്ത്രതലത്തിൽ നീക്കമുാക്കണമെന്ന ആവശ്യവും നിയമസഭ മുന്നോട്ടുവച്ചു

വൈറസ് ബാധ സംശയിക്കുന്നതിനെ തുടർന്ന് വീടുകളിൽ നിരീക്ഷണത്തിലുളളവർക്ക് വായു സഞ്ചാരമുള്ള മുറിയും പ്രത്യേകം ശൌചാലയവും ഒരുക്കണം ഇവർ ഒരു കാരണവശാലും വിവാഹം മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയവയിൽ പങ്കെടുക്കാൻ പാടില്ല സോപ്പും വെളളവും ഉപയോഗിച്ച് കൈകൾ നിരന്തരം കഴുകുക ഹാന്റ് സാനിറ്റൈസർ ഉപയോഗിക്കുക തുടങ്ങിയ പൊതു നിർദ്ദേശങ്ങളും പാലിക്കണം സർജിക്കൽ മാസ്ക് കർശനമായും ഉപയോഗിക്കുകയും ഇത് പരമാവധി എട്ട് മണിക്കൂറിനുളളിൽ നശിപ്പിക്കേതാണ്

ചുമ പനി ശ്വാസതടസം തുടങ്ങിയ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഹെൽപ്പലൈൻ നമ്പരിലോ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലോ അറിയിക്കണം

വിശദാംശങ്ങളുമായി ബിന്ദു ്വിനോദ്

ഇന്ത്യൻ ഓഹരി വിപണികൾ കഴിഞ്ഞ ര് വർഷത്തിനിടയിലെ കുറവ് നിലയിലാണ് വ്യാപാരം നടത്തുന്നത്

മുൻകരുതൽ ശക്തമാക്കിയതോടെ ആഗോളതലത്തിൽ ബിസിനസ് യാത്രകൾ അടക്കം നിശ്ചലമായിട്ടു്

രോഗം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുമെന്ന് ഭീതിയും സാമ്പത്തിക രംഗത്തെ ആശങ്കയിലാഴ്ത്തുന്നു

നേരത്തെ ലോക്സഭ പാസാക്കിയ ബിൽ ഇന്ന് രാജ്യസഭയിലും പാസായതോടെയാണ് നിയമമായുത് മൂറുന്ന കാലത്തിനനുസരിച്ച് വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിൽ സ്റ്റർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ധനമന്ത്രി നിർമലാ സീതാരാമൻ ചർച്ചയ്ക്ക് മറുപടിയായി പറഞ്ഞു

രാജ്യത്തെ കൽക്കരി ഖനികളെ നിർണ്ണയിച്ച ശേഷമുണ്ടാകുന്ന പ്രവർത്തനകാലതാമസം ഒഴിവാക്കാൻ ഈ ബില്ല് സഹായകരമാവുമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു